പ്രവർത്തിക്കാൻ സാർക്ക് രാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു

ഗുരുദാരയിലേയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടനത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ വിലക്ക്

നാളെ വിശ്വാസവോട്ട് തേടും

കൂടുതൽ വിവരങ്ങളുമാട്ടി ദേവി പ്രിയ

രോഗത്തെ ജാഗ്രതയോടെ നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വൈറസ് ബാധ തടയാൻ ഇന്ത്യയെടുത്ത മുൻകരുതലുകളെ പരാമർശിച്ച പ്രധാനമന്ത്രി പരിഭ്രാന്തിയല്ല ജാഗ്രതയാണ് ആവശ്യമെന്ന് അഭിപ്രായപ്പെട്ടു

മാധ്യമങ്ങളിലൂടെ ഇതിനായി ഇന്ത്യയിൽ വ്യാപകമായ പ്രചാരണം നടത്തിവരികയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു വൈറസ് ബാധ തടയാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായുന്നത് ആവശൃമാണെന്ന് മാൾഡീവ്സ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് അറിയിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

എയർ ഇന്ത്യുടെ രണ്ടു വിമാനങ്ങളിലാണ് ഇവരെ ഇന്ത്യയിലെത്തിച്ചത് തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഇവരെ ജയ്സാൽമറിലെ കരസേനയുടെ നിയന്ത്രണത്തിലുള്ള നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി

ഇവർ രണ്ടാഴ്ച നിരീക്ഷണത്തിൽ ആയിരിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

ഡൽഹിയിൽ ചാവ്ളയിലെ ഐ

ദുരിതമനുഭവിക്കുന്ന ഇന്ത്യാക്കാർ ലോകത്ത് എവിടെയാണെങ്കിലും അവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വൃക്തമാക്കി ഇന്തൃക്കാരെ നാട്ടിലെത്തിക്കാൻ പൂർണ്ണ പിന്തുണ നൽകിയ ഇറ്റാലിയൻ സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തിയ ശ്രീ മുരളീധരൻ എയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു

കൊറോണ വൈറസ് ബാധയെ തുടർന്നാണ് ഈ നിർദ്ദേശം

യാത്രക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പിളി പുതപ്പ് നൽകുമെന്നും റെയിൽവെ അറിയിച്ചു

സി

റെയിൽവെ കോച്ചുകളുടെ അകത്തും പുറത്തും കീടനാശിനി തളിക്കുന്നുണ്ട്

പരിശോധനയ്ക്ക് പോലീസ് സഹായം ഏർപ്പെടുത്തി ട്രെയിനുകൾ സംസ്ഥാന അതിർത്തി പിന്നിട്ട് ആദ്യം നിർത്തുന്ന സ്ഥലത്ത് യാത്രക്കാരെ പരിശോധിക്കാൻ സംവിധാനമൊരുക്കി

പുതിയ നിർദ്ദേശങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ലെന്നും നാടിന്റെ സുരക്ഷയ്ക്ക് ഇതാവശ്യമാണെന്ന് മനസിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു

പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കുക കൈകൾ വൃത്തിയായി കഴുകാതെ കണ്ണ് മൂക്ക് വായ് തുടങ്ങിയ ഭാഗങ്ങളിൽ സ്പർശിക്കരുത് പൊതു സ്ഥലങ്ങളിൽ തുപ്പുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം എല്ലാവരും സോപ്പും വെള്ളവുമുപയോഗിച്ചോ ആൾക്കഹോൾ അടങ്ങിയ ഹാൻഡ് വാഷ് സാനിസൈറ്റർ തുടങ്ങിയവ ഉപയോഗിച്ചോ ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കുക

കൊറോണ വൈറസിന്റെ പ്രാഥമിക പരിശ്ചേജ്ജന്യും രണ്ടാമത്തെ സ്ഥിരീകരണ പരിശോധനയും സർക്കാർ ൃസ്ാജന്യമാക്കിയിട്ടുണ്ടെന്ന് സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവ കുമാർ ഡൽഹിയിൽ പറഞ്ഞു

തീവ്രവാദികൾ ഒളിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലത്തിനു ചുറ്റും സുരക്ഷാവലയം തീർത്ത് സൈന്യവും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും സംയുക്തമായി തിരച്ചിൽ നടത്തുന്നതായി ഡി ജി പി ദിൽബാഗ് സിംഗ് അറിയിച്ചു

എൽ

ഈ സാഹചര്യമാണ് കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സ് മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കിയത് ്മധ്യപ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ കോൺഗ്രസ് എം എൽ എ മാരെ ജയ്പൂരിൽ നിന്നും ഭോപ്പാലിൽ എത്തിച്ചു

ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നാളെ പങ്കെടുക്കണമെന്ന് എം

വിശ്വാസ വോട്ടെടുപ്പിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കാട്ടി ബി ജെ പി യും ഇന്ന് പാർട്ടി എം എൽ എ മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് ബി ജെ പി എം എൽ എ മാർ ഹരിയാനയിലെ ഒരു ഹോട്ടലിൽ കഴിയുകയാണ്

പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിരു അഡീഷണൽ സെക്രട്ടറി ദമ്മു രവിയ്ക്ക് ചുമതല നൽകി ഇന്ത്യൻ ദൌത്യ സംഘങ്ങൾ മുഴുവൻ സമയം പ്രവർത്തിക്കുകയും വിദ്ദേശത്തു് നിന്നുള്ള ഇന്ത്യാക്കാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽക്കുകയും ചെയ്യുന്നു വിദേശകാരൃ മന്ത്രി ജയ് ശങ്കർ വിദേശ കാരൂ ക്രിസ്ക്കട്ടറി ഹർഷ് വർദ്ധൻശിംഗ്ല എന്നിവർ നേരിട്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്

ജമ്മുകാശ്മീരിന്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് സംഘത്തിന് ആഭ്യന്തര മന്ത്രി ഉറപ്പു നൽകി

മേഖലയിൽ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്നും അത്തരം അഭിപ്രായങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു വിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച് ജമ്മുകാശ്മീരിനായി സാമ്പത്തിക വികസന നയ രൂപരേഖ ഉടൻ തയ്യാറാക്കും

അമിത്ഷാ പറഞ്ഞു

സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്ന് റബ്ബർ ബോട്ടുകളിലായാണ് ഇവർ പലായനം ചെയ്തത് പിടിയിലായവരെ ലിബിയ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്

എൽ മത്സരങ്ങൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബി സി

ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി